രാമജന്മഭൂമി ബാബറി മസ്ജിദ് കേസിൽ സുപ്രീംകോടതി ഇന്ന് മുതൽ വാദം കേൾക്കും

ഹരിയാന നിയമസഭ കേന്ദ്രസർക്കാരിന് നന്ദി അറിയിച്ച് പ്രമേയം പാസാക്കി

സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ കേന്ദ്രഭരണ പ്രദേശ പദവി ലഡാക്ക് ആവശൃപ്പെടുകയാണ് ദീർഘകാല ആവശ്യം നിറവേറ്റപ്പെട്ടതിലുളള സന്തോഷം പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു

സൈന്യത്തിന്റെ നോർത്തേൺ കമാന്റ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ രൺബീർ സിങ് ഇന്നലെ രാത്രി ഗവർണ്ണറെ സന്ദർശിച്ച് സുരക്ഷാസ്ഥിതി വിശദീകരിച്ചു ശ്രീനഗർ ആസ്ഥാനമായ സേനയുടെ കമാന്റിംഗ് ജനറൽ ഓഫീസർ ലഫ്റ്റനന്റ് ജനറൽ കെ

എസ് ധില്ലനും രാജ്ഭവനിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തു

ഇത് സംബന്ധിച്ച പ്രമേയത്തിന് രാജ്യസഭ ഇന്നലെ അംഗീകാരം നൽകി

ജമ്മുകാശ്മീർ ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്രഭരണപ്രദേശങ്ങളായി സംസ്ഥാനത്തെ വിഭജിക്കാൻ ബിൽ ലക്ഷ്യമിടുന്നു ജമ്മുകാശ്മീർ പ്രത്യേക നിയമസഭയുളള കേന്ദ്രഭരണപ്രദേശമായും ലഡാക്കിനെയും നിയമസഭയില്ലാത്ത കേന്ദ്രഭരണപ്രദേശമായും ബിൽ വ്യവസ്ഥചെയ്യുന്നു

അഞ്ചുവർഷത്തിനുളളിൽരാജൃത്തെ മികച്ച സംസ്ഥാനമായി ജമ്മുകാശ്മീരിനെ മാറ്റുമെന്നമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ അദ്ധ്യക്ഷതയിലുള്ള അഞ്ചുംഗ ഭരണഘടനാ ബഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായ എസ്

മുൻ സുപ്രീംകോടതി ജഡ്ജി എഫ്

ഐ ഖലീഫുള്ളയുടെ നേതൃത്വത്തിലുള്ള മദ്ധ്യസ്ഥ സമിതിയുടെ നാല് മാസക്കാലത്തോളമുള്ള ശ്രമങ്ങളിൽ സമവായത്തിലെത്താൻ സാധിച്ചിരുന്നില്ല ആത്മീയാചാര്യനും ആർട്ട് ഓഫ് ലിവിംഗ് സ്ഥാപകനുമായ ശ്രീ ശ്രീ രവിശങ്കർ മുതിർന്ന അഭിഭാഷകൻ ശ്രീറാം പഞ്ചു എന്നിവരുൾപ്പെട്ട സമിതി വിഷയത്തിൽ പരിഹാരം കാണാൻ സാധിച്ചില്ല എന്ന റിപ്പോർട്ടാണ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചത്

പണസമ്പാദനത്തിന് മാത്രമായി ഗർഭപാത്രം നൽകുന്നത് നിയമത്തിൽ നിരോധിച്ചിട്ടുണ്ട് നിസാർത്ഥമായി മറ്റൊരാളെ സഹായിക്കുന്നതിനായി മാത്രമേ അനുവാദം നൽകുന്നുള്ളു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവശേഷം അവർക്ക് നൽകുന്ന പ്രക്രിയയാണ് വാടക ഗർഭധാരണം ഈ മേഖലയിലെ ചൂഷണത്തിന് തടയിടാൻ പുതിയ നിയമനിർമ്മാണത്തിലൂടെ സാധിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ

വൈകിട്ട് ആറ് മണി വരെ പോളിങ് ബൂത്തിലെത്തിയവർക്ക് ടോക്കൺ നൽകി വോട്ടുചെയ്യാൻ അവസരം നൽകി

എഐഎഡിഎംകെ ഡിഎംകെ ചെറുകക്ഷിയായ നാം തമിഴർ പാർട്ടി എന്നിവ തമ്മിലാണ് പ്രധാന മത്സരം ഏപ്രിലിൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണഘട്ടത്തിൽ വൻതോതില പണം പിടിച്ചെടുത്തതിനെ തുടർന്നാണ് ഇവിടത്തെ തെരഞ്ഞെടുപ്പ് നീട്ടിവച്ചത്

വിദേശകാര്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഡോ ജയശങ്കർ നടത്തുന്ന ആദ്യ ചൈനീസ് സന്ദർശനമാണിത്

ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും ഇരുനേതാക്കളും ചർച്ച ചെയ്യും

ബഷീറിന്റെ മരണത്തിനിടയാക്കിയ കാർ അപകടത്തിൽ അറസ്റ്റിലായ ശ്രീറാം വെങ്കിട്ടരാമന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ്സ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ ഇന്ന് വാദം കേൾക്കുക

വാഹന്റാ്പക്ടത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നതിന് പ്രത്യേക് പോലീസ് സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്

അതിനിടെ മെഡിക്കൽകോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ശ്രീ റാമിന്റെ ആരോഗൃസ്ഥിതി വിലയിരുത്താൻ മെഡിക്കൽബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്

ബി ഐ അന്വേഷിച്ച കേസിൽ ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസുകാരാണ് പ്രതിയായിരുന്നത്